ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യ മെന്ന് ആശുപത്രി കേന്ദ്രങ്ങൾ അറിയിച്ചു വ്യാഴാഴ്ച രാവിലെ റായ്ബറേലി കോടതിയിലേക്ക് പോകുന്നതിനിടെ ബലാത്സംഗ കേസിലെ രണ്ട് പ്രതികൾ ഉൾപ്പെടെ അഞ്ചുപേർ ചേർന്ന് പെൺകുട്ടിയുടെ ശരീരത്തിൽ മണ്ണെണ്ണയൊ ഴിച്ച് തീകൊളുത്തുകയായിരുന്നു ലക്നൌവിൽ നിന്ന് വിദഗ്ദ്ധ ചികിത്സ ക്കായി പെൺകുട്ടിയെ ഡൽഹിയിൽ എത്തിച്ചിരുന്നു ദർവ്വെട്ടറ നല്ല സിനിമ ചലച്ചിത്ര മേഖലയിലെ പുതുതലമുറയുടെ ലഹരിയായി മാറണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവശ്യപ്പെട്ടു പുതിയ സാങ്കേ തികവിദൃകൾ പരമാവധി പ്രയോജനപ്പെടുത്തി നല്ല സിനിമകൾ രൂപംകൊ ള്ളണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു

ചലച്ചിത്രതാരം ശാരദ ചട ങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു മലയാള സിനിമയുടെ നാൾവഴികൾ എന്ന ഗ്രന്ഥത്തിന്റെ ആദ്യ വാല്യം ഷാജി എൻ കരുണിന് നൽകി മുഖ്യമന്ത്രി പ്രകാശനം ചെയ്തു

ശുചിത്വം മാലിന്യ സംസ്ക രണം കൃഷി ജലസംരക്ഷണം തുടങ്ങിയ മേഖലകളിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച സ്ഥാപനങ്ങൾക്ക് മന്ത്രി എ സി മൊയ്തീനാണ് തിരുവനന്തപു രത്ത് അവാർഡുകൾ പ്രഖ്യാപിച്ചത് ഗ്രാമപഞ്ചായത്ത് വിഭാഗത്തിൽ കണ്ണൂർ ജില്ലയിലെ പടിയൂർ ഒന്നാംസ്ഥാനം നേടി നഗരസഭാ വിഭാഗത്തിൽ പൊന്നാ നി ഒന്നാംസ്ഥാനവും വടകര രണ്ടാംസ്ഥാനവും നേടി കോർപ്പറേഷൻ വിഭാ ഗത്തിൽ തിരുവനന്തപുരത്തിനാണ് ഒന്നാംസ്ഥാനം

ദിവസം അഞ്ചു ലക്ഷം ബാരൽ ഉത്പാദനം കുറയ്ക്കാനാണ് ഇന്നലെ വിയന്നയിൽ ചേർന്ന യോഗത്തിൽ ധാരണയായത് ജനുവരി ഒന്നുമുതൽ ഉത്പാദനം കുറയ്ക്കും ആഗോളവില പിടിച്ചുനിർത്താനും ചില രാജ്യങ്ങൾ വൻതോതിൽ പെട്രോ ളിയം ഉത്പന്നങ്ങൾ സംഭരിച്ചിരിക്കുന്ന സാഹചര്യം നേരിടാനുമാണ് ഉത്പാ ദനം കുറയ്ക്കുന്നത് ഇന്ത്യ അടക്കം ഇറക്കുമതി രാജ്യങ്ങളിൽ പെട്രോളിയം വില ഉയരാൻ ഒപെക് തീരുമാനം വഴിയൊരുക്കുമെന്നാണ് വിലയിരുത്തൽ

പല സംസ്ഥാന ഹജ്ജ് കമ്മിറ്റികളും ഈ ആവശ്യം ഉന്നയിച്ചതിനെ തുടർന്നാണ് തിയ്യതി നീട്ടു ന്നതെന്ന് കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ മക്സൂദ് അഹമ്മദ് ഖാൻ അറിയിച്ചു ഇതുവരെ രണ്ടുലക്ഷത്തി പതിനായിരത്തിലേറെ അപേക്ഷകൾ ലഭിച്ചിട്ടുണ്ട്

സമാജ്വാദി പാർട്ടി എം പി ജാവേദ് അലിയാണ് ബിൽ കൊണ്ടുവന്നത് രദ്ദേഷ്ടങ സംസ്ഥാന ഗവൺമെന്റിന്റെ കഴിഞ്ഞ വർഷത്തെ സ്വദേ ശാ ഭി മാനി കേസരി പുരസ്കാരത്തിന് കലാകൌമുദി ചീഫ് എഡിറ്റർ എം

ഒരുലക്ഷം രൂപയും പ്രശസ്തിപത്രവും ശില്പവുമാണ് അവാർഡ് മലയാള മാധ്യമ പ്രവർത്തനത്തിൽ സജീവ ഇടപെടൽ നട ത്തുകയും സ്ഥാധീനം ചെലുത്തുകയും ചെയ്ത മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിലാണ് എം എസ് മണി അവാർഡിന് അർഹനാ യത്

മാതൃരാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വേണ്ടി പോരാടി മരിച്ച ധീര സൈനികരുടെ ഓർമ്മ പുതു ക്കാനാണ് പതാകാദിനം ആചരിക്കുന്നത് സൈനിക സേവനത്തിന് യുവജ നങ്ങളെ സജ്ജരാക്കാനും ദിനാചരണം ലക്ഷ്യമിടുന്നു രാവിലെ കോഴിക്കോട് ജില്ലാ സൈനികക്ഷേമ ഓഫീസിൽ മന്ത്രി എ കെ ശശീന്ദ്രൻ ദിനാചരണം ഉദ്ഘാടനം ചെയ്യും ആദ്യ പതാകയും മന്ത്രി ഏറ്റുവാങ്ങും കണ്ണൂരിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ദിനാഘോഷം ഉദ്ഘാടനം ചെയ്യും ദർവ്വെടു ലോക്സഭയിൽ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി സംസാരിക്കുന്നതിനിടെ ഇന്നലെ മോശമായി പെരുമാറിയതിന് കോൺഗ്രസ് എം പിമാരായ ടി എൻ പ്രതാപനും ഡീൻ കുര്യാക്കോസിനും എതിരെ ബി ജെ പി സ്പീക്കർക്ക് നോട്ടീസ് നൽകി ഇരുവരെയും ശീതകാല സമ്മേളനത്തിൽ നിന്ന് സസ്പെന്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്ന പ്രമേയം തിങ്കളാഴ്ച ബി

പിയിലെ പ്രഹ്ളാദ് ജോഷി അവതരിപ്പിക്കും

ടി റിട്ടേൺ സംബ ന്ധിച്ച ഇടപാടുകാരുടെ പ്രതികരണം ഇന്ന് അറിയിക്കാം സംസ്ഥാനത്ത് കോഴിക്കോട് കൊച്ചി തിരുവനന്തപുരം ജി

ടി ഭവനുകളിൽ ഫീഡ്ബാക്ക് ദിവസ് സംഘടിപ്പിച്ചിട്ടുണ്ട്

ഹൈദരാബാദിൽ ആറ് വിക്കറ്റിനാണ് ഇന്ത്യ ജയി ച്ചത്

സിക്ക് രണ്ടാം വിജ യം ഗോവയിൽ ഇന്നലെ ആദൃ എവേ മത്സരത്തിൽ ഇന്തൃൻ ആരോസിനെ ഗോകുലം മറുപടിയില്ലാത്ത ഒരുഗോളിന് തോൽപ്പിച്ചു ഒരു താരം ചുവപ്പു കാർഡ് കണ്ട് പുറത്തുപോയതിനാൽ പത്തുപേരുമായാണ് ഗോകുലം കളി പൂർത്തിയാക്കിയത്

കേരളത്തിന്റെ ഇന്ദ്രജ അനശ്വര അഞ്ജു സാബു എന്നിവർ സെമിയിൽ മത്സരിക്കുന്നുണ്ട്

എസ് എൽ ഫുട്ബോളിൽ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എ ടി

ഗോഹട്ടിയിൽ രാത്രി ഏഴരയ്ക്കാണ് മത്സരം

ടി ഐയിലെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ഹോസ്റ്റലുകൾ മന്ത്രി ടി പി രാമകൃഷ്ണൻ രാവിലെ ഉദ്ഘാടനം ചെയ്യും

രാവിലെ ഗവൺമെന്റ് ചീഫ് വിപ്പ് കെ രാജൻ മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്യും നഗരത്തിലെ വിവിധ വേദികളിലാണ് മത്സരങ്ങൾ രണ്ടായിരത്തിലേറെപേർ പങ്കെടുക്കും നാളെ സമാപന സമ്മേളനം മന്ത്രി സി രവീന്ദ്രനാഥ് ഉദ്ഘാ ടനം ചെയ്യും

മുൻ ദേശീയ ബോക്സിംഗ് താരം കെ

രുട്ട്ട്ട്ട്ട്ട്ട്ട പാലക്കാട് ചിറ്റൂർ ഗവൺമെന്റ് വിക്ടോറിയ ഹൈസ്കൂളിനെ മന്ത്രി സി രവീന്ദ്രനാഥ് ഇന്ന് ഹൈടെക്കായി പ്രഖ്യാപിക്കും സ്കൂളിന്റെ പുതിയ കെട്ടി ടവും അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും മന്ത്രി കെ കൃഷ്ണൻകുട്ടി ചടങ്ങിൽ അധ്യക്ഷനാകും രുട്ട്ട്ട്ട്ട്ട്ട്ട മോട്ടോർ വാഹന വകുപ്പിന്റെ ഹെൽമറ്റ് ബോധവത്കരണ മോട്ടോർ സൈക്കിൾ റാലി രാവിലെ കോഴിക്കോട് ബീച്ചിൽ മന്ത്രി എ കെ ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും പിൻസീറ്റ് യാത്രക്കാർക്കും ഹെൽമറ്റ് നിർബന്ധമാക്കിയ സാഹചര്യത്തിലാണ് റാലി സംഘടിപ്പിക്കുന്നതെന്ന് കോഴിക്കോട് ആർ ടി ഒ എം പി സുഭാഷ്ബാബു അറിയിച്ചു ദർശ്ശിക്കു കോഴിക്കോട് പനങ്ങാട് ഗ്രാമപഞ്ചായത്തിലെ തലയാട് കുടുംബക്ഷേമ കേന്ദ്രം വൈകീട്ട് മന്ത്രി ടി പി രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും

പി രാഹുൽഗാന്ധി അറിയിച്ചു മികച്ച വൈദ്യസഹായം ലഭിക്കുന്ന ആശുപത്രികൾ ഉണ്ടായിരുന്നെങ്കിൽ ക്ലാസ്മു റിയിൽ പാമ്പുകടിയേറ്റ ഷഹ്ലയെ രക്ഷിക്കാനാവുമായിരുന്നെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു നേരത്തെ കൽപ്പറ്റ നിയോജക മണ്ഡലം യു ഡി എഫ് കൺവെൻഷൻ രാഹുൽ ഉദ്ഘാടനം ചെയ്തു രാജ്യത്തെ സാമ്പത്തിക സ്ഥിതി പാടെ തകർന്നുവെന്ന് രാഹുൽഗാന്ധി കുറ്റപ്പെടുത്തി രുട്ട്ട്ട്ട്ട്ട്ട്ട ലൈംഗിക അതിക്രമങ്ങൾക്ക് ഇരയാകുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും തുണയായി കോട്ടയം ജില്ലയിൽ വിമൻ ആന്റ് ചിൽഡ്രൻ ഹോമും വൺ സ്റ്റോപ്പ് കേന്ദ്രവും പ്രവർത്തനം തുടങ്ങി പീഡനം നേരിടുന്നവർക്ക് താമസി ക്കാൻ മുട്ടമ്പലത്ത് വിമൻ ആന്റ് ചിൽഡ്രൻ ഹോമും കുമരകത്ത് സഹായ കേന്ദ്രവുമാണ് ഒരുക്കിയിരിക്കുന്നത്

കുഞ്ചിത്തണ്ണി സ്വദേശി ഷാജി പീറ്റർ ബൈസൺവാലി എട്ടൂർ കോളനിയിലെ സുബ്രഹ്മണ്യൻ മാടസ്വാമി ട എന്നിവരാണ് പിടിയിലായത് ൾട്ട്ട്ട്ട്ട്ട്ട മികച്ച ട്രേഡ് യൂണിയൻ പ്രവർത്തകന് ഇടുക്കിയിലെ തൊഴിലാളി പഠന കേന്ദ്രം ഏർപ്പെടുത്തിയ ജി വരദൻ സ്മാരക അവാർഡിന് മുൻ എം

എകൂടിയായ എ കെ മണി അർഹനായി മൂന്നാറിൽ അടുത്തമാസം പ്രതി പക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അവാർഡ് സമ്മാനിക്കും

പട്ടികവർഗക്കാരിൽ തൊഴിൽരഹിതരായ മുഴുവൻ യുവജനങ്ങൾക്കും മെച്ചപ്പെട്ട തൊഴിൽ ലഭ്യമാക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് മേള രജിസ്ട്രേ ഷൻ രാവിലെ ആരംഭിക്കും രുട്ട്ട്ട്ട്ട്ട്ട്ട കോട്ടയം ജില്ലയിലെ പനച്ചിക്കാട് ഗ്രാമപഞ്ചായത്ത് തരിശ് രഹിതമാക്കു ന്നതിന് അവസാനഘട്ട പ്രവർത്തനങ്ങൾ തുടങ്ങി